വാർത്തകൾ വിശദമായി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഞായറാഴ്ച്ച വൈകീട്ട് അവസാനിക്കാനിരിക്കെ കേരളം ആവേശത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് ദേശീയ നേതാക്കളും മുൻനിര നേതാക്കളുമാണ് സംസ്ഥാനത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പത്തനംതിട്ടയിലെ കോന്നിയിലും തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കുചേരും പത്തനംതിട്ടയിൽ കോന്നിയിലെ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിജയ് റാലി വേദി സ്റ്റേഡിയത്തോട് ചേർന്ന് തയാറാക്കിയ താൽക്കാലിക ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം മൈതാനത്ത് എത്തിച്ചേരും ഒരു മണിയോടെ പ്രധാനമന്ത്രി വേദിയിലെത്തും ഒരു ലക്ഷം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് സ്റ്റേഡിയത്തിലെ സജ്ജീകരണങ്ങൾ ഒൻപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സംബന്ധിക്കും തുടർന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി നാലരയോടെ തിരുവനന്തപുരത്തെത്തും തുടർന്നായിരിക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ വയനാട്ടിലും കോഴിക്കോട്ടും എൻഡിഎ ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങും ഇന്നലെ കരുനാഗപ്പള്ളിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ

നദ്ദയും ഹരിപ്പാട്ടും അടൂരും യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും എൻഡിഎ ക്ക് വേണ്ടി പ്രചാരണത്തിൽ പങ്കുചേർന്നു സിപിഐഎം നേതാക്കളായ പ്രകാശ് കാരാട്ട് വൃന്ദാ കാരാട്ട് എം

ബേബി എസ് രാമചന്ദ്രൻപിള്ള തുടങ്ങിയവർ ഇന്നലെ എൽഡിഎഫിന്റെ പ്രചാരണത്തിൽ പങ്കെടുത്തു ഇടതു ഗവൺമെന്റിനെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന അന്വേഷണവും അതിനു പിന്നിലെ ഗൂഢാലോചനയും വിജയിക്കില്ലെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കോഴിക്കോട്ട് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രചാരണ രംഗത്ത് സജീവമാണ് വൈകീട്ട് വടകരയിലെ എൽഡിഎഫ് പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ഇന്നലെ യുഡിഎഫിന് വേണ്ടി വയനാട് ജില്ലയിലും തിരുവമ്പാടിയിലും പ്രചാരണം നടത്തിയ ശേഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മടങ്ങി പ്രചാരണത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം നാളെ വീണ്ടും കേരളത്തിലെത്തും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായിരിക്കും നാളത്തെ പ്രചാരണ പരിപാടി പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന് അദ്ദേഹം വയനാട്ടിൽ പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട്

കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട് രംഭ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിങ്ങ് ചൌഹാൻ ഇന്ന് കോഴിക്കോട്ടെത്തും രാവിലെ ബേപ്പൂർ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടിയിൽ ചൌഹാൻ പങ്കെടുക്കും പാലക്കാട് തൃശൂർ ജില്ലകളിലും അദ്ദേഹം പ്രചാരണം നടത്തും

ജെ പി നേതാവ് ഷാനവാസ് ഹുസൈൻ ഇന്ന് ഉച്ചയ്ക്ക് കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും വൈകീട്ട് കണ്ണൂർ നഗരത്തിലെ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് രുര ലോകത്തെ സുഗന്ധ വിളകളുടെ തലസ്ഥാനമെന്ന വയനാടിന്റെ പേര് തിരിച്ചുപിടിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു അഞ്ച് വർഷം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും വയനാടിന് സ്വന്തമായൊരു മെഡിക്കൽ കോളജ് പോലും അനുവദിക്കാതെ ബോർഡ് വെയ്ക്കുക മാത്രമാണ് എൽഡിഎഫ് ഗവൺമെന്റ് ചെയ്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കൽപ്പറ്റയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം പൊതുയോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി തിരുവമ്പാടി മണ്ഡലത്തിലെ കൂടരഞ്ഞിയിലും രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പങ്കെടുത്തു

മലപ്പുറം പാണ്ടിക്കാട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഒട്ടേറെ കെടുതികൾ നേരിട്ട അഞ്ചു വർഷം പിന്നിട്ടപ്പോൾ അയ്യായിരം കോടി രൂപ ഖജനാവിൽ മിച്ചമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത സാമ്പത്തിക വർഷത്തെ ധന മാനേജ്മെന്റ് സുഗമമാകുമെന്ന് ഉറപ്പാണെന്ന് ഡോ തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു

സുരേന്ദ്രനാണെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാ കാരാട്ട് പറഞ്ഞു ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്നും അവർ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് റാലികളിൽ കുറ്റപ്പെടുത്തി രും സിപിഐഎം നേതാക്കൾക്കും മന്ത്രിമാർക്കും വഴിവിട്ട നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് തിരുവനന്തപുരത്തെ യുഎഇ കോൺസൽ ജനറലിന് സംസ്ഥാന ഗവൺമെന്റ് അനർഹമായ സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി കൊല്ലത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ യോഗം അഞ്ചാലുംമൂട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പറച്ചിൽ സഹതാപം ഉണർത്താൻ വേണ്ടിയാണെന്നും ചോദ്യം ചെയ്താൽ പലകാര്യങ്ങളും പുറത്തുവരുമെന്ന പേടികൊണ്ടാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും മുരളീധരൻ ആരോപിച്ചു

ത്യാഗത്തിന്റേയും സഹനത്തിന്റേയും പീഢാനുഭവത്തിന്റേയും കാൽവരിയിലെ കുരിശു മരണത്തിന്റേയും സ്മരണകളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മരണത്തിന്റെ മൂന്നാംനാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസത്തിൽ ഞായറാഴ്ച്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉത്സവമായ ഈസ്റ്റർ ആഘോഷിക്കും ദേഴ രാജ്യത്ത് മൂന്നാംഘട്ട കോവിഡ് വാക്സിനേഷന് ഇന്നലെ തുടക്കമായി

കേന്ദ്ര ഉന്നതതല സംഘം ഇവയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ട്

രുഭ ജില്ലയിൽ കോവിഡ് വാക്സിനേഷൻ ഇടുക്കി ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ മാസം ഏഴ് മുതൽ മൂന്ന് സഞ്ചരിക്കുന്ന വാക്സിനേഷൻ യൂണിറ്റുകൾ ഏർപ്പെടുത്തും കൊല്ലം അച്ചൻകോവിൽ മേഖലയിൽ ഇന്ന് വാക്സിനേഷൻ ക്യാമ്പ് നടത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പ്രത്യേക കേന്ദ്രങ്ങളിലും രാവിലെ ഒൻപത് മുതൽ വൈകീട്ട് മൂന്ന് വരെ കോവിഡ് വാക്സിൻ കുത്തിവെയ്പ്പ് ഉണ്ടായിരിക്കും രംഭ ഇന്ന് ലോക ഓട്ടിസം ബോധവവൽക്കരണ ദിനം ഓട്ടിസം ബാധിതരെ മനസിലാക്കാനും അംഗീകരിക്കാനും പിന്തുണ നൽകാനും അതുവഴി സമൂഹത്തിൽ തുല്യ അവസരങ്ങൾ ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് ആഗോളതലത്തിൽ ഏപ്രിൽ രണ്ട് ഓട്ടിസം ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് കൊവിഡാനന്തര കാലത്തെ തൊഴിൽമേഖലകളിൽ ഓട്ടിസം ബാധിതർ നേരിടുന്ന വെല്ലുവിളികളും അവസരങ്ങളും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം രുര ദേശീയപാതാ നിർമാണത്തിൽ രാജ്യം മികച്ച നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു